എ പി ബി അബ്ദുൾ റസാഖ് അന്തരിച്ചു

ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും സൈന നെഹ്വാളും സെമിഫൈനലിൽ പ്രവേശിച്ചു

ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും

വിശദാംശങ്ങളുമായി പ്രിയ

ദസറ ആഘോഷങ്ങളോടനുബന്ധിച്ച് രാവണന്റെ കോലം കത്തിക്കുന്നത് വീക്ഷിക്കുവാൻ ട്രെയിൽവേ ട്രാക്കിൽ നിന്ന്വരുടെ ഇടയിലൂടെ ട്രെയിൻ കടന്നുപോയതിനെ തുടർന്നാണ് അപടകടമുണ്ടായത്

ജലന്ധറിൽ നിന്നും അമൃത്സറിലേക്ക് പോകുകയായിരുന്നു ട്രെയിൻ മരിച്ചവരിൽ പലരുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു

ആദരസൂചകമായി ഗവൺമെൻ്റ് ഇന്ന് പഞ്ചാബിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്

അടിയന്തര സഹായം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു കേന്ദ്രറെയിൽവേ സഹമന്ത്രി മനോജ് സിൻഹയും ഉന്നത് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി

കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്രവിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവരുമായും ശ്രീലങ്കൻ പ്രധാനമന്ത്രി ചർച്ച നടത്തും മൂന്ന് ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് വിക്രമസിംഗെ ന്യൂഡൽഹിയിലെത്തിയത്

ജില്ലാ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

ഇന്ന് വൈകുന്നേരത്തോടെ ഫലം പൂർണ്ണമായും അറിയാൻ കഴിയും

വിവിധ രാജ്യങ്ങളിലെ സംഗ്ലീത്ജ്ഞർ ഈണം നൽകിയ ഭജന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്റുപിൽ പങ്കു വച്ചു കെനിയ കുവൈറ്റ് കിർഗിസ്ഥാൻ ല്ലാവോസ് എന്നീ രാജ്യങ്ങളിലെ ഗായകരാണ് ഭജന ആലപിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

ചൈനയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കൃത്രിമതടാകം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ആസാം മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് കൊൽക്കത്തയിൽ നിന്നും ദിബ്രുറാഖിലേക്ക് ദേശീയ ദുരന്ത പ്രതിരോധ സേനയുടെ ആറ് സംഘങ്ങൾ അടിയന്തിരമായി എത്തിയതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ആസാമിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തെ നേരിടാൻ ദുബ്രുറാഖ് ധേമാജി ലാഖിംഗ് പൂർ ടിൻസുക്കിയ ജില്ലകളിലെ അധികൃതർ ജാഗ്രത പാലിക്കണം എന്ന് ശ്രീ സോനോവാൾ നിർദ്ദേശിച്ചു

എന്നാൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കാലവർഷം തുടരുമെന്ന് ദേശീയ കാലാവസ്ഥ പ്രവചന കേന്ദ്രം മേധാവി സതി ദേവി ന്യുഡൽഹിയിൽ അറിയിച്ചു

ബീഹാറിലും പശ്ചിമബംഗാളിലും വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലുമാണ് ഈ വർഷം ഏറ്റവും കുറവ് മഴ ലഭിച്ചത്

എ യുമായ പി

കാസർകോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിൽസയിലായിരുന്നു ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം മുസ്തീം ലീഗ്ര് ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പി ബി അബ്ദുൾ റസാഖ് മുതൽ മഞ്ചേശ്വരം എം

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

സംഭവത്തിൽ സൌദി ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു

ഖഷോഗിയുടെ തിരോധാനം ആഗോളതലത്തിൽ വൻ പ്രതിഷേധത്തിനിടയാ ക്കിയിരുന്നു ഈ മാസം രണ്ട് മുതലാണ് വാഷിങ്ടൺ പോസ്റ്റിലെ മാധ്യമപ്രവർത്തകനായ ഖഷോഗിയെ ഇസ്താംബൂൾ നയതന്ത്ര കാര്യാലയത്തിൽ നിന്ന് കാണാതായത് ഖഷോഗിയുടെ തിരോധാനത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അമേരിക്ക സൌദിയോട് ആവശൃപ്പെട്ടിരുന്നു

ടിബറ്റൻ മേഖലയിലാണ് ചൈനയിൽ യാർലങ് സാങ്ബോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടത് ഇതിനെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ തരണം ചെയ്യുന്നതിനും നദിയുടെ ഒഴുക്ക് പൂർവ്വ സ്ഥിതിയിലാക്കുന്നതിനും അധികൃതർ അടിയന്തിര നടപടിയെടുത്തുവെന്ന് ചൈന അറിയിച്ചതായി വിദേശകാരൃ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു

ഏഷ്യൻ ഗെയിംസ് ഗോൾഫ് മെഡൽ ജേതാവായ വിനേഷ് ഫോഗട്ട് കൈമുട്ടിലെ പരിക്കിനെ തുടർന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല റിതു ഫോഗട്ട് സാക്ഷി മാലിക്ക് സന്ദീപ് തോമർ മൌസം കഖത്രി ് എന്നിവർ മത്സരത്തിനിറങ്ങും

വിപണിയിലെ ഉള്ളിയുടെ ദൌർലഭ്യം നേരിടാൻ കരുതൽ ശേഖരത്തിൽ നിന്നുമാണ് ഉള്ളി വിതരണം ചെയ്യുന്നത്

വകുപ്പ് സെക്രട്ടറീ അവിനാശ് കെ ശ്രീവാസ്തവ അദ്ധ്യക്ഷനായിരുന്നു ഇടന്റിലൂക്കാരുടെ പക്കലുള്ള ഉള്ളിയുടെ ശേഖരവും വിലയും യോഗ്രം അവലോകനം ചെയ്തു

കാണ്ഡഹാറിലെ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടന്ന സ്ഫോടനത്തെ തുടർന്ന് ഒരാഴ്ചത്തേക്ക് നീട്ടി വച്ചു ഗസനിയിലും സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്